ഭാരതത്തിന്റെ സംസ്കാര ഭാഷ വൈവിധൃങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ദേവേന്ദ്ര പട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ തീരുമാനത്തെ ചോദ്യംചെയ്ത് ത്രികക്ഷി സഖ്യം സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയിൽ നാളെയും വാദം തുടരും

ഊർജ്ജിതമായി

അയോധ്യ വീഷ്യത്തിൽ സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിയെ തുറന്ന മനസ്സോടെയും സംയമനത്തോടെയും സ്വീകരിച്ച ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ പ്ലാസ്റ്റിക് വിമുക്ത ഇന്ത്യ പരിസ്ഥിതി സംരക്ഷണം മാതൃഭാഷ പ്രോത്സാഹനം തുടങ്ങിയ വിഷയങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു

ചരിത്രപരമായ അയോദ്ധ്യ വിധി പരമോന്നത നീതിപിഠത്തോടുള്ള രാജ്യത്തിന്റെ ആദരവ് വർദ്ധിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻകി ബാത്തിൽ പറഞ്ഞു

രാജ്യത്തെ സൈനികരുടെ സമർപ്പണ മനോഭാവത്തെ കൃതജ്ഞതയോടെ സ്മരിക്കാനും പ്രധാനമന്ത്രി മൻകി ബാത്തിൽ പറഞ്ഞു

രാജൃത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കൂന്നു ഉത്സവങ്ങളുടെയും സംസ്കാരത്തിന്റെയും വൈവിധ്യങ്ങള്ള്ക്കുറിച്ചും നദികളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആഘോഷ്ടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻകി ബാത്തിന്റെ ഇന്നത്തെ അധ്യായ്ടത്തിൽ പ്രതിപാദിച്ചു ക് ഏകഭാരതം ശ്രേഷ്ഠഭാരതൃക്കുകുന്നത് ഉയർത്തിപിടിക്കാനും സംസ്കാരം പ്രകൃതി പരിസ്ഥിതി ജില്ലം എന്നിവയുടെ സംരക്ഷണത്തിന് ഇൌ ആഘോഷങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യൻ സംസ്കാരവും ഭാഷകളും ലോകത്തിന് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ സന്ദേശമാണ് നൽകുന്നതെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു മാതൃഭാഷയുടെ പ്രാധാന്യം ഏറെയാണ് മാതൃഭാഷ സംസാരത്തിനായി ഉപയോഗിക്കുകയും കുടുംബത്തേയും സമൂഹത്തേയും അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യണം

ഭരണഘടനാദിനം ഭരണഘടനയുടെ ആദർശ ങ്ങളെ നിലനിർത്തുന്നതിനും രാഷ്ട്രനിർമ്മാണത്തിനുള്ള പ്രതിബദ്ധതയെ ബലപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി പറഞ്ഞു

ഇത് സംബന്ധിച്ച് എല്ലാ സ്ഐസ്ഫാനങ്ങളോടും വിദ്യാഭ്യാസ ബോർഡുകളോടും അഭ്യർത്ഥിക്കുന്നത്മായും പ്രധാനമന്ത്രി പറഞ്ഞു

ഫിറ്റ് ഇന്ത്യ എന്നത് സ്ത്ര്യാവികമായ സ്വഭാവമായി മാറണമെന്നും പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻകി ബാത്തിന്റെ ഇന്നത്തെ അധ്യായം അവസാനിപ്പിച്ചത്

സി

കോൺഗ്രസ് എന്നീ കക്ഷികൾ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീംകോടതിയിൽ നാളെയും വാദം തുടരും ജസ്റ്റിസുമാരായ എൻ

രമണ അശോക് ഭൂഷൺ സഞ്ചീവ് ഖന്ന എന്നിവരടങ്ങിയ ബഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്

ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിച്ച ഗവർണറുടെ നടപടിയെ ചോദ്യംചെയ്ത് ഇന്നലെ രാത്രിയാണ് സഖ്യം സുപ്രീംകോടതിയിൽ ഹർജിസമർപ്പിച്ചത്

ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് രൂപീകരിക്കാൻ തങ്ങളെ ക്ഷണിക്കാൻ ഗവർണർ ഭഗത്സിംഗ് കോഷിയാരിക്ക് നിർദ്ദേശം നൽകണമെന്നും ശിവസേന എൻ സി

കോൺഗ്രസ്സ് സഖ്യം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

ചെന്നൈയിൽ ജി രാമചന്ദ്രൻ സ്മാരക പ്രഭാഷണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ താൽപര്യങ്ങൾക്ക് എതിരായതുകൊണ്ടാണ് ആർ

ആഗോള വിപണിയിൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വേണ്ട സൌകര്യങ്ങൾ ഗവൺമെന്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നും അവർ വൃക്തമാക്കി ബാങ്കിംങ് മേഖലയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ ശക്തമാക്കാൻ റിസർവ്വ് ബാങ്ക് ഓഫ് ഇന്ത്യയും കേന്ദ്ര ഗവൺമെന്റും ശ്രമിക്കുകയാണെന്ന് കേന്ദ്രധനമന്ത്രി അറിയിച്ചു

ജെ പി കോൺഗ്രസ് ജെ എം എം ഝാർഖണ്ഡ് വികാസ് മോർച്ച പാർട്ടി നേതാക്കൾ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ തെരഞ്ഞെടുപ്പ് റാലികളിലും റോഡ്ഷോകളിലും പങ്കെടുക്കും പ്രചാരണത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ്സിംഗ് സ്മൃതി ഇറാനി എന്നിവർ ഇന്ന് വിവിധ തെരഞ്ഞെടുപ്പ് യോഗങ്ങളെ അഭിസംബോധന ചെയ്യും

ദേശീയ അന്തർദ്ദേശീയ തലങ്ങളിൽ മെഡലുകൾ നേടിയ കായികതാരങ്ങൾ പലപ്പോഴും ജോലിയില്ലാതെ തുടരുകയാണ് ഗവൺമെന്റ് ജോലികളിൽ അഞ്ച് ശതമാനം സംവരണം നൽകുന്നത് ഈ താരങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു

ബ്രക്സിറ്റുമായി മുന്നോട്ടുപോകുമെന്ന് തന്നെയാകും ബോറിസ് ജോൺസൺന്റെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ആദായനികുതി ദേശീയ ഇൻഷുറൻസ് തുക വാറ്റ് എന്നിവ വർദ്ധിപ്പിക്കില്ലെന്നുമുള്ള വാഗ്ദാനങ്ങൾ ബോറിസ് ജോൺസൺ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് കരുതുന്നത്

ഇതിന് അമേരിക്കയുടെ പിൻതുണയും ബ്ലൂ ആൻ്റ് വൈറ്റ് പാർട്ടി നേതാവായ അദ്ദേഹം നേടിയിട്ടുണ്ട്

അനാവശ്യ തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനാണ് അധികാരം പങ്കുവയ്ക്കുന്നതിനുള്ള ധാരണയുമായി മുന്നോട്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു

പ്രക്ഷോഭകാരികൾക്കെതിരെ സുരക്ഷാസേനാ റബ്ബർ ബുള്ളറ്റും കണ്ണീർവാതകവും പ്രയോഗിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് രണ്ടു പേർ കൊല്ലപ്പെട്ടത്